തലത്തിലേക്ക് ദേശീയ നേതാക്കൾ പ്രോട്ടഭ്യർത്ഥിച്ച് മണ്ഡലങ്ങളിൽ

പ്രതിപക്ഷ നേതാവ് വീണ്ടും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകി ഇന്ന് ലോക കാലാവസ്ഥാ ദിനം

സംസ്ഥാനത്ത് ഉഷ്ണ തരംഗത്തിന് സാധൃത

ഇന്ന് പൂനെയിൽ

വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം അവശേഷിക്കെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെ പ്രചാരണം സജീവമാക്കി സ്ഥാനാർത്ഥികളും പാർട്ടി പ്രവർത്തകരും വോട്ട് തേടി പര്യടനം തുടരുമ്പോൾ പകൽച്ചൂടിനെ വെല്ലുന്ന തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് പോവുകയാണ് മണ്ഡലങ്ങൾ

ഡി എ യുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം സംസ്ഥാനത്ത് എത്തുന്ന മുതിർന്ന ബിജെപി നേതാവും കേന്ദ്രമന്ത്രിയുമായ അമിത് ഷാ നാളെ വിവിധയിടങ്ങളിൽ പൊതുസമ്മേളനങ്ങളിലും റോഡ് ഷോയിലും പങ്കെടുക്കും ഇന്ന് രാത്രി ഉണ്ട്ടുമ്പാശ്ശേരിയിലെത്തുന്ന അദ്ദേഹം രാവിലെ ഹെലികോപ്റ്റർ മ്മൂർഗ്ഗം തൃപ്പുണിത്തുറയിലേക്ക് പോയി അവിടെ റോഡ് ഷോ നട്ടത്തൂം ഉച്ചതിരിഞ്ഞ് കോട്ടയം കാഞ്ഞിരപ്പള്ളിയിലും കൊല്ലും പ്പൂറ്റിങ്ങലിലും അമിത് ഷാ പൊതുസമ്മേളനത്തെ അഭിസുംബോധന ചെയ്യും വൈകിട്ട് പാലക്കാട് കഞ്ചിക്കോട്ട് റോഡ്ഷോയിൽ പങ്കെടുത്ത ശേഷം അദ്ദേഹം കോയമ്പത്തൂരിന് പോകും

എഫ് നേടിയതിൽ യു ഡി എഫും ബിജെപിയും അസ്വസ്ഥരാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആലപ്പുഴയിൽ പറഞ്ഞു മതനിരപേക്ഷത ഉയർത്തി പിടിച്ച് വർഗീയതയെ ചെറുക്കാൻ കോൺഗ്രസ് പരാജയമാണെന്ന് ശ്രീ

ജെ പിയെ ശക്തിപ്പെടുത്തുന്നത് കോൺഗ്രസാണ് കോൺഗ്രസിനും ബി

തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം മുഖ്യമന്ത്രി ഇന്ന് ആലപ്പുഴ ജില്ലയിൽ അഞ്ച് പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും തിരുനെല്ലൂർ ആലപ്പുഴ കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലാണ് പരിപാടി പ്രചാരണം ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്ന് കണ്ണൂർ ജില്ലയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം വിവിധ കേന്ദ്രങ്ങളിൽ പരൃടനം നടത്തും ഉച്ചക്ക് ഇരിക്കൂർ ടൌണിന് ശേഷം പേരാവൂർ ടൌൺ മുണ്ടേരി ഇടയിൽ പീടികകമ്പിൽ ടൌൺ എന്നിവിടങ്ങളിൽ ശ്രീ

നോട്ടു അസാധുവാക്കലും ജി

സംസ്കാനിത്ത് പി എസ് സി വഴിയുള്ള നിയമനം നിഷേധിക്കപ്പെട്ടത്തിന്നെ തുടർന്ന് സമരം ചെയ്യേണ്ടി വന്നവരോട് മുഖ്യമന്ത്രിച്ചർച്ച നടത്താൻ തയാറാകാതിരുന്നത് പ്രതിഷേധാ്ർഹമാണെന്നും രാഹുൽ ഗാന്ധി കോട്ടയത്ത് പറഞ്ഞു

എം ജനറൽ സ്ക്രട്ടറി സീതാറാം യെച്ചൂരി ഇന്ന് കണ്ണൂർ ജില്ലയിലെ ്തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങളിൽ പങ്കെടുക്കും വൈകിട്ട് നാലിന് പഴയങ്ങാടിയിലും പിന്നീട് ശ്രീകണ്ഠപുരത്തും നടക്കുന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗങ്ങൾ യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും ജില്ലകളിലൂടെ പാലക്കാട് ഇൻട്രോ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം പിന്നിട്ടതോടെ പാലക്കാട് ജില്ലയിൽ പ്രചാരണത്തിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായി നിശ്ചയിച്ച സ്ഥാനാർത്ഥികൾ തന്നെ ഉറപ്പായതോടെ അടുത്ത ഘട്ടം പ്രചാരണത്തിന് മുന്നണികൾ കച്ച കെട്ടി ഇറങ്ങിക്കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി ഞങ്ങളുടെ ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്

ഒരേ വ്യക്തിയു്ടെ ഫോട്ടോ ഉപയോഗിച്ച് മറ്റ് പേരുകളിലും വിലാസങ്ങളിലും വോട്ടർമാരെ സൃഷ്ടിക്കുന്നത് കണ്ടെത്തിയതായി ശ്രീ ്ല്ച്ന്നിത്തല പ്രസ്താവിച്ചു

അർഹരായ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ എത്തേണ്ട സ്ഥലം ബന്ധപ്പെട്ട റിട്ടേണിംഗ് ഓഫീസർ അറിയിക്കും കന്നിവോട്ട് കളക്ടർ തിരുവനന്തപുരം ജില്ലയിൽ സ്വീപിന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാവിലെ കന്നി വോട്ടർമാർക്കായി സംഘടിപ്പിക്കുന്ന ഒപ്പുശേഖരണം ജില്ലാ കളക്ടർ ഡോ നവജ്യോത് ഖോസ ഉദ്ഘാടനം ചെയ്തു

സമുദ്രം നമ്മുടെ കാലാവസ്ഥയും കാലഭേദവും എന്നതാണ് ഈ വർഷത്തെ കാലാവസ്ഥ ദിന പ്രമേയം ഉഷ്ണ തരംഗം അന്തരീക്ഷ താപനില ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് ഉഷ്ണതരംഗം ഉണ്ടാകാനുള്ള സാധൃത സംബന്ധിച്ച് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി

രോഗികളും പ്രായമായവരും കുട്ടികളും കടുത്ത ചൂടിൽ പുറത്തിറങ്ങാൻ പാടില്ലെന്നും മുന്നറിയിപ്പിൽ പറയുന്നു മഴ സംസ്ഥാനത്ത് ഇന്നും നാളെയും പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് കാസറഗോഡ് കണ്ണൂർ ഒഴികെയുള്ള ജില്ലകളിലാണ് ഇടിമിന്നലും കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യത അടുത്ത മാസം ആദ്യത്തോടെ വേനൽമഴ സജീവമാകുമെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു

തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടിയത്

ഷാർജയിൽ നിന്നെത്തിയ മലപ്പുറം കാസർഗോഡ് സ്വദേശികളിൽ നിന്നാണ് സ്വർണ്ണ മിശ്രിതം പിടികൂടിയത്

എസ് സി വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്